സുപ്രീംകോടതി നാളെ വിധി പറയും

പ്രതാപനും ഹൈബി ഇന്റ്ഡനും സസ്പെൻഷൻ രമൃ ഹരിദാസിനെതിരെ കയ്യേറ്റും

ജെ

അട്ടിമറിക്കുന്നുവെന്ന് പ്രപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

സ്കൂൾ നാളെ പ്രവർത്തനം പുനരാരംഭിക്കും മലപ്പുറത്ത് വില്ലേജ് ഓഫീസുകളിൽ മിന്നൽ പരിശോധന

സി ഹൈദരബാദ് മത്സരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് എൻ സി പി ശിവസേന കോൺഗ്രസ്സ് എന്നീ കക്ഷികൾ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും

ദേവേന്ദ്ര ഫട്നവിസിന്റെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ഗവർണർ ഭഗത്സിങ് കോഷിയാരി കൈക്കൊ തീരുമാനത്തിനെതിരെയാണ് ത്രികക്ഷി സഖ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര ്ഗവൺമെന്റിന് വേ ി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ സമർപ്പിച്ചു ജസ്റ്റിസുമാരായ എൻ

രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖ്ന്ന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്ടുന്നത്

സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള സ്ഥലമാണ് പാർലമെന്റെന്നും പാർലമെന്റിലെ കോൺഗ്രസ് അംഗങ്ങളുടെ പെരുമാറ്റം സഭയുടെ അന്തസ്സിന് യോജിച്ചതല്ലെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി സംഭവത്തെ അപലപിച്ചു അതേസമയം കോൺഗ്രസിന്റെ ര ് വനിതാ എം പിമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് നേരെ മാർഷൽമാർ കയ്യേറ്റം നടത്തിയെന്ന് പാർട്ടി ആരോപിച്ചു വനിതാ എം പി മാർ സ്പീക്കർക്ക് പരാതി നൽകിയതായി ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ പറഞ്ഞു

ജെ പി് പാർലമെന്റിലും ജന്മ്യൂപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനാണ് ലക്ഷ്യമിടുന്നൂരിന്റ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ജനാധിപത്യ ധംസനത്തിനെതിരെ പ്രതിഷേധിച്ച ഹൈബി ഈഡനെയും ടി

വനിതാ അംഗങ്ങളായ രമ്യാ ഹരിദാസും ജ്യോതിമണിയും പുരുഷ മാർഷലുമാരുടെ കയ്യേറ്റത്തിനിരയായി എന്നത് ഞെട്ടിക്കുന്നതാണെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു

ശക്തമായി പ്രതികരിച്ചു ഹൈബി ഈഡനെയും ടി എൻ പ്രതാപനെയും സസ്പെൻഡ് ചെയ്തതിനും ബെന്നി ബെഹനാൻ പരിക്ക് പറ്റാൻ ഇട വന്നതിനും യാതൊരു ന്യായീകരണവുമില്ലെന്നും ശ്രീ സുധീരൻ പ്രസ്താവിച്ചു

കൂടുതൽ വിവരങ്ങളൂമായി വയനാട്ടിൽ നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്

ജോളിയെ അന്നമ്മ കേസിൽ തുടർ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണസംഘം കോടതിയിൽ അപേക്ഷ നൽകും

പ്രതികളായ ഫ്ളാറ്റ് നിർമാതാവ് സാനി ഫ്രാൻസിസ് പഞ്ചായത്ത് മുൻ സൂപ്ര ് പി ഇ ജോസഫ് എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്

പ്രകൃതിക്ഷോഭങ്ങളെ പ്രസ്തിടുന്നതിൽ ജപ്പാന്റെ ശ്രമങ്ങൾ വിജയകരമാണെന്നുഐ കേരളത്തിന് ജപ്പാനിൽ നിന്നും വളരെയധികം പഠിക്കാനു ന്നും തന്റെ സന്ദർശന ഉദ്ദേശ്യങ്ങളിലൊന്ന് ഇതാണെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി

എസ് കൃാമ്പ് കേസിൽ ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് എൻ ഐ

എല്ലാ പ്രതികൾക്കെതിരെയും കോടതി യു എ

എ ചുമത്തി

കേസിന്റെ വിധി മറ്റന്നാൾ പ്രസ്താവിക്കും

ചരക്കു സേവന നികുതി നടപ്പാക്കിയത് വ്യാപാരം എളുപ്പമാക്കുന്നതിനായി കൈക്കൊ സുപ്രധാന നടപടിയാണെന്ന് അവർ പറഞ്ഞു

സംസ്ഥാനത്തെ ആരോഗ്യ സേവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശദമായി ചർച്ച നടത്തിയതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

കൊച്ചി ബി പി സി എൽ പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചി ബി പി സി എൽ വിൽക്കാനുള്ള നീക്കത്തിനെതിരെ കെ പി സി സി യുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ മാർച്ച് നടത്തി തൃപ്പൂണിത്തുറ പേട്ട മുതൽ അമ്പലമുകൾ വരെയായിരുന്നു മാർച്ച് ബി പി സി എൽ വിൽപ്പനയ്ക്കുള്ള കേന്ദ്ര തീരുമാനം രാജ്യതാൽപര്യങ്ങൾക്ക് എതിരാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ടി യുടെ ആഭിമുഖൃത്തിൽ തയാറാക്കിയ പഠനകാർഡുകളുടെയും പോസ്റ്ററുകളുടെയും പ്രകാശനവും നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിക്കും രാവിലെ പൂജപ്പുര എസ്

ഇ ആർ

കേരള സർവ്വകലാശാലയുടെ നിയമ പഠനവകുപ്പ് സംഘടിപ്പിക്കുന്ന ഭരണഘടനാ ദിനാഘോഷ പരിപാടികൾ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ഉദ്ഘാടനം ചെയ്യും

ജില്ലാ കളക്ടറും എ ഡി

പരിശോധനയിൽ ക ത്തിയ ന്യൂനതകൾ സംബന്ധിച്ച് അപ്പോൾ തന്നെ നോട്ടീസ് നൽകി ജീവനക്കാരിൽ നിന്നും വിശദീകര്യങ്ങൾ ആവശ്യപ്പെട്ടു

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

ഇന്നലെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ഒഡീഷ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു